വിശേഷിപ്പിച്ച ബി ജെ

പാർലമെന്റ് അംഗം പ്രജ്ഞാ സിംഗ് താക്കൂറിന്റെ പ്രസ്താവന അപലപനീയമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്

ശിവസേന അധ്യക്ഷൻ ഉദ്ദവ് താക്കറെ ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി കേരളം

തിരിതെളിഞ്ഞു

ജെ

പാർലമെന്റംഗം പ്രജ്ഞാ സിംഗ് താക്കൂറിന്റെ പ്രസ്താവന അപലപനീയമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രജ്ഞയുടെ ആശയ സംഹിതയോട് ഒരു തരത്തിലും യോജിക്കാനാവില്ലെന്ന് ശ്രീ

ഇന്നലെ പ്രജ്ഞാ സിംഗ് നടത്തിയ പ്രസ്താവനയെ അപലപിച്ച് രാവിലെ ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വച്ചു

വിഷയം ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളിൽ നിന്നുള്ള അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കർ ഓം ബ്ലിർള ഇത് അനുവദിച്ചില്ല

രാജ്യസ്ട്യിൽ സിപിഐഎം അംഗം കെ

രാഗേഷും ആം ആദ്മിപ്പാർട്ടി അംഗം സഞ്ജയ് സിംഗും വിഷയത്തിൽ അടിയന്തരപ്രമ്യത്തിന് നോട്ടീസ് നൽകി

നാഥുറാം ഗോഡ്സെള്ളു ദേശഭക്തനാക്കുന്ന ചിന്താധാരയോട് യോജിക്കാനാകില്ലെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്നലെ എസ്പിജി ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കുന്നതിനിടെയാണ് പ്രജ്ഞാ സിംഗ് താക്കൂർ വിവാദ പ്രസ്താവന നടത്തിയത്

ജെ

പ്രജ്ഞയെ പ്രതിരോധ കാരൃ പാർലമെന്ററി സമിതിയിൽ നിന്നും നീക്കം ചെയ്തതായി ബി ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

പ്രജ്ഞയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്നും ഇത്തരം തത്വശാസ്ത്രങ്ങളെ ബി ജെ

മധ്യമുംബൈയിലെ ശിവജി പാർക്കിൽ ഇന്ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്

ഒരു മാസത്തിലേറെ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ മഹാരാഷ്ട്രയിൽ ശിവസേന എൻസിപി കോൺഗ്രസ് സഖ്യ ഗവൺമെന്റ് ഇന്ന് അധികാരമേൽക്കുകയാണ്

സഖ്യകക്ഷികൾക്കിടയിലുള്ള ധാരണ്ണ് അ്നുസരിച്ച് നിയമസഭാ സ്പീക്കർ സ്ഥാനം കോൺഗ്രസിനാണ്

കൂൻസിപി അധ്യക്ഷൻ ശരത് പവാർ ശിവസേന നേതാവ് ഉദ്ദവ് ് താക്ക്റെ മഹാരാഷ്ട്രയുടെ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് ്ജിനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവർ ഇന്നലെ കീട്ടിക്കാഴ്ച നടത്തി മന്ത്രി സ്ഥാനങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഇന്ന് എത്ര മന്ത്രിസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല ആയിരക്കണക്കിന് പേർ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ട്രാഫിക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഡിസംബർ മൂന്നിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാണ് ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി ശ്രീ ഉദ്ദവ് താക്കറെയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് രാജ്യസഭയിൽ ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ശ്രീമതി നിർമലാ സീതാരാമൻ

മൂലധന നിക്ഷേപം ജി എസ്

ന്യൂഡൽഹിയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ

ബിജെപി അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഛത്ര ഗർഹ്വാ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

സംവരണവും തൊഴിലുമാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണായുധമായി ഏറ്റെടുത്തിട്ടുള്ളത്

ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പ്പദ്ധതികളെ ക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാർ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിന്റെ പ്രധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു

ജലസേചന വെളളപൊക്ക നിയന്ത്രണ വകുപ്പിന്റെ പ്രവർത്തനം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദേശം ജലസ്രോതസ്സുകളുടെ സംരക്ഷണം പരമപ്രധാനമാണെന്ന് പറഞ്ഞ അദ്ദേഹം ജലസംരക്ഷണത്തിൽ തദ്ദേശസ്ഥാപനങ്ങളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും സജീവ പങ്കാളികളാകണമെന്നും ആവശ്യപ്പെട്ടു

നിയമസഭാ സ്പീക്കർ പി

ലോകത്ത് തന്നെ ഇത്രയും വലിയ സാംസ്കാരിക സമുന്നയത്തിന്റെ പ്രഖ്യാപനം നടക്കുന്ന വേദി ഉണ്ടാകില്ലെന്നും സ്പീക്കർ പറഞ്ഞു

രവീന്ദ്രനാഥ് ഇ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു

പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുളള ഗോതബയയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ എത്തുന്ന ശ്രീലങ്കൻ പ്രസിഡന്റിന് നാളെ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ആചാരപരമായ വരവേൽപ്പ് നൽകും പിന്നീട് രാജ്ഘട്ടിൽ എത്തുന്ന രജപക്സെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും